ഇരു സഭകളുടേയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും

വാർത്തകൾ വിശദമായി കൊറോണയെ ഫലപ്രദമായി നിയന്ത്രിച്ചതിലൂടെ മനുഷ്യരാശിയെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക സാമ്പത്തിക ഫോറത്തിൽ പറഞ്ഞു ദാവോസ് ചർച്ചാ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് മഹാമാരിയെ നേരിടാനാകുമോ എന്ന് ആദ്യം ആശങ്കയുണ്ടായെങ്കിലും രാജ്യത്തിന്റെ കഴിവ് മുഴുവനായും പകർച്ചവ്യാധിക്കെതിരെ ഉപയോഗിച്ച് ആരോഗ്യമേഖലയുടെ പൂർണ പങ്കാളിത്തതോടെ പ്രതിരോധം ശക്തമാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിച്ച് കോവിഡ് പരിശോധനകളും രോഗനിർണയവും ശക്തമാക്കി മഹാമാരി നേരിടാൻ ഇന്ത്യയെ പര്യാപ്തമാക്കി കോവിഡ് പ്രതിരോധം ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി പരമാവധി പൌരൻമാരുടേയും ജീവൻ രക്ഷിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു

ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അദ്ദേഹം എടുത്ത് പറഞ്ഞു

മറ്റംഗങ്ങൾ ലോക്സഭ രാജ്യസഭാ ചേമ്പറുകളിലായിരിക്കും പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പിന്തുണ തേടാൻ ഗവൺമെന്റ് നാളെ സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഞായറാഴ്ച്ച രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യ നായിഡുവും സഭയിലെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി രാജ്യസഭ രാവിലെ ഒൻപത് മുതൽ ഉച്ചക്ക് രണ്ട് വരെയും ലോക്സഭ വൈകീട്ട് നാല് മുതൽ ഒൻപത് വരെയുമായിരിക്കും സമ്മേളിക്കുന്നത്

രണ്ടാം ഘട്ട സമ്മേളനം മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ തുടരും സാമ്പത്തിക സർവ്വെ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വെയ്ക്കും ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് പൂർണമായി കടലാസ് രഹിത ബജറ്റായിരിക്കും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്

ബസ്സ്റ്റാന്റ് റെയിൽവെ സ്റ്റേഷൻ ആശുപത്രികൾ ഷോപ്പിങ്ങ് മാളുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർ മാസ്കും സാമൂഹിക അകലവും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പൊലീസ് നിരീക്ഷണം ശക്തമാക്കും ആവശ്യമായ സ്ഥലങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും കൂടുതലായി നിയമിക്കും പൊതുസമ്മേളനങ്ങൾ വിവാഹങ്ങൾ എന്നിവയടക്കം ചടങ്ങുകൾ കഴിവതും തുറസായ സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു

കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം ഓരോ ദിവസവും ഒരു ലക്ഷമെന്ന നിലയിലേക്ക് ഉയർത്താനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് പനി ലക്ഷണങ്ങൾ കണ്ടാലുടൻ ടെസ്റ്റ് നടത്താനും രോഗം കണ്ടെത്താനും ആരോഗ്യ വകുപ്പ് ശ്രമങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇതിനായി അടിസ്ഥാനങ്ങളിലേക്ക് തിരികെ പോവുക എന്ന മുദ്രാവാക്യവുമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു ട്രെയിൻ യാത്രക്കാരിൽ മാസ്ക് ഉപയോഗം കുറഞ്ഞു വരുന്ന പ്രവണത അപകടമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കൂട്ടായ്മയും ഒത്തൊരുമിച്ച പ്രവർത്തനവും കൊണ്ട് ഇപ്പോഴത്തെ അപകടസന്ധി മറികടക്കാനാകുമെന്നും പിണറായി വിജയൻ വിശ്വാസം പ്രകടിപ്പിച്ചു

കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നലെ വാക്സിനേഷനിൽ പങ്കെടുത്തത് രദര സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞതായി മന്ത്രി കെ

ആർക്കും ഇതുവരെ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു രുര കൊല്ലം ജില്ലയിൽ ഹാർബറുകളിലേയും ലേല ഹാളുകളിലേയും മത്സ്യ ലേലം പൂർണമായി ഒഴിവാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ മത്സ്യ വിപണനം നടത്താവു എന്ന് നിർദേശം നൽകിയിട്ടുണ്ട്

ഭാവി കേരളത്തിന്റെ സൃഷ്ടിക്ക് ദിശാബോധം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ഒൻപത് സുപ്രധാന മേഖലകളിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ നിർദേശിക്കാനാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

നൊബേൽ ജേതാക്കളായ പ്രൊഫ അമർത്യാസെന്നും പ്രോഫ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സും ഇതിൽ പങ്കെടുക്കും ഇവർക്ക് പുറമെ വ്യവസായ പ്രമുഖരായ രത്തൻ ടാറ്റ ആനന്ദ് മഹീന്ദ്ര എം

യൂസഫലി രവി പിള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ ഡോ ആസാദ് മൂപ്പൻ തുടങ്ങിയവരും ലോകാരോഗ്യ സംഘടനാ ചീഫ് സയന്റിസ്റ്റ് ഡോ

രും സംസ്ഥാന ഗവൺമെന്റിന്റെ ജില്ലാതല സാന്ത്വന സ്പർശം അദാലത്തുകൾ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും

ഇതിന് ഫീസ് ഈടാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

സിബിഎസ്ഇ സഹോദയാ സ്കൂൾ പ്രസിഡന്റുമാരുടേയും സെക്രട്ടറിമാരുടേയും യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

രും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്സി ബെങ്കളൂരു എഫ്സി മത്സരം ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു ഇന്ന് രാത്രി ഏഴരയ്ക്ക് എഫ്സി ഗോവ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും ഗോവയിലാണ് മത്സരം രുര കർഷകമോർച്ച സംഘടിപ്പിച്ച കർഷക മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം കോഴിക്കോട്ട് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ

കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നിയമത്തെ കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ആശങ്ക അകറ്റാനുമാണ് കർഷക മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചത്

അബ്ദുള്ളകുട്ടി വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു രംഭ കോഴിക്കോട് ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ നമ്മുടെ കോഴിക്കോട് ന്റെ ലോഞ്ചിങ്ങ് നാളെ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നടത്തുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവറാവു അറിയിച്ചു മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ടി

രാമകൃഷ്ണൻ എ

ശശീന്ദ്രൻ ജില്ലയിലെ എംപിമാർ തുടങ്ങിയവർ പങ്കെടുക്കും രംഭ മെഡിക്കൽ കോളേജ് അധ്യാപകർ ഇന്ന് രാവിലെ എട്ട് മുതൽ മൂന്ന് മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തും കോവിഡ് ചികിത്സയും അടിയന്തരസേവനങ്ങളും ഉണ്ടാവുമെങ്കിലും ഒപികൾ ബഹിഷ്ക്കരിക്കുമെന്നും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ നടത്തില്ലെന്നും കേരളാ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ചാണ് പണിമുടക്ക് രുമ എറണാകുളം ജില്ലയിൽ ഇന്നലെ ഒരു ഷിഗെല്ല കേസ് കൂടി സ്ഥിരീകരിച്ചു

കുട്ടിയുടെ ഇരട്ട സഹോദരിയേയും രോഗ ലക്ഷണങ്ങളെ തുടർന്ന് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രുമ ഏത് ദുരന്ത സാഹചര്യങ്ങളും നേരിടാൻ തഴവയിൽ നിർമ്മിച്ച ദുരിതാശ്വാസ അഭയ കേന്ദ്രം പര്യാപ്തമാണെന്ന് മന്ത്രി ഇ

ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയിൽ നിർമ്മിച്ച കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുര സാധാരണക്കാരുടെ ആവശ്യങ്ങളിൽ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന ഉചിതമായ സമീപനമാണ് വില്ലേജ് ഓഫീസുകളെ കൂടുതൽ സ്മാർട്ട് ആക്കുന്നതെന്ന് മന്ത്രി ഇ

കൊല്ലം അയണിവേലികുളങ്ങര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുര വൈക്കം ഉദയനാപുരത്ത് മസ്ലിൻഖാദി ഉദ്പാദന കേന്ദ്രം മന്ത്രി ഇ

സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായ മേഖല വൻ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു രുര കണ്ണൂർ റെയിൽവെ സ്റ്റേഷനിൽ സ്ഥാപിക്കുന്ന ഓട്ടോമാറ്റിക് തെർമൽ സ്മാർട്ട് ഗേറ്റ് രാവിലെ കെ

യാത്രക്കാരുടെ ഫോട്ടോ ശരീര താപനില എത്ര ആളുകൾ കടന്നുപോയി തുടങ്ങിയ വിവരങ്ങൾ റെയിൽവെ അതോറിറ്റിക്കും ആരോഗ്യ വകുപ്പിനും ഇതിലൂടെ ലഭ്യമാകും

ചെയർമാനായി തലശേരി ക്യാമ്പസിലെ എം

ഹസ്സനെയും ജനറൽ സെക്രട്ടറിയായി കാസർകോട് ഗവൺമെന്റ് കോളജിലെ കെ